ഡി

ഡി എഫിന്റെ രണ്ടാം ഘട്ട പ്രചാരണം നാളെ തുടങ്ങും

ജെ പി സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിച്ചേക്കും

വി പാറ്റ് വോട്ടു കളും എണ്ണമെന്ന് സി

ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക്സിന് ഇന്ന് പട്യാലയിൽ തുടക്കമാകും

ആദ്യഘട്ട പ്രചാരണം പൂർത്തി യാക്കിയ എൽ ഡി എഫ് നാളെ രണ്ടാംഘട്ട പ്രചാരണത്തിന് തുടക്കമിടും

ഡി എഫിന്റെ പ്രചാരണത്തിന് ഇന്നലെ കോഴിക്കോട്ട് ഔപചാരികമായി തുടക്കമിട്ടു കോൺഗ്രസ്സി ന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥിച്ചപ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്നതോടെ പ്രചാരണ രംഗം കൂടുതൽ സജീവമാകും കേരളത്തിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാര ണത്തിന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കോഴി ക്കോട്ട് തുടക്കം കുറിച്ചു ബീച്ചിൽ സംഘടിപ്പിച്ച ജനമഹാ റാലി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു

എ അധികാര ത്തിലെത്തിയാൽ അഴിമതിക്കെതിരെ ശക്തമായ നടപടിയു ണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു റഫേൽ ഉൾപ്പെടെ ഒട്ടേറെ അഴിമതി ഇടപാടുകളിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ ജയിലിലടക്കും

എമ്മും ആർ എസ് എസ്സും കേരളത്തിൽ അക്രമത്തിന്റെ പാതയിലാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെ ടുത്തി പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സി

അത്തരം അക്രമങ്ങൾ ഇനി കേരളത്തിൽ തുടരാൻ അനു വദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി വൃക്തമാക്കി ഹിംസയെ അഹിംസകൊണ്ട് നേരിടുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ അദ്ദേഹം അഭിനന്ദിച്ചു കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാ നിക്കാൻ ഇന്ന് ഡൽഹിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണിയായശേഷം പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൈമാറും

ഇന്ന് ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എ ഐ

സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരുമായി കേരളത്തിന്റെ ചുമ തല വഹിക്കുന്ന മുകുൾ വാസ്നിക് ചർച്ച നടത്തും ഇന്നലെ കേരള നേതാക്കൾ രാഹുൽ ഗാന്ധിക്കൊപ്പം കോഴിക്കോട്ടു നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക നാളെ ഡൽഹിയിൽ പ്രഖ്യാപിച്ചേക്കും സംസ്ഥാന ഘടകം സമർപ്പിച്ച ചുരുക്കപ്പട്ടിക വിലയിരുത്തിയായിരിക്കും കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥികളെ അന്തിമമായി പ്രഖ്യാപിക്കുന്ന ത്

എസ് ശ്രീധരൻപിള്ളയും കുമ്മനം രാജശേഖരനുമ ടക്കം നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി ചർച്ചയ്ക്ക് നാളെ ഡൽഹിയിലെത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുമായി സഖ്യമുണ്ടാക്കി മത്സരിക്കുന്നവർക്ക് കെട്ടിവെച്ച തുക പോലും കിട്ടില്ലെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്ര ട്ടറി എ എൻ രാധാകൃഷ്ണൻ ആലപ്പുഴയിൽ പറഞ്ഞു പാർലമെന്റിൽ പത്തുശതമാനം സീറ്റില്ലാത്തവർ ബി

പിയ്ക്ക് ബദലാകില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തീര ദേശ സംരക്ഷണ സമിതി ബി

പിയിൽ ലയിക്കുന്നതു മായി ബന്ധപ്പെട്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു രാധാകൃഷ്ണൻ

ഡി എഫിന്റെ ലോക്സഭാ മണ്ഡലം കൺവെൻഷ നുകൾ പൂർത്തിയായി അടുത്തഘട്ടത്തിലെ നിയമസഭാ മണ്ഡല കൺവെൻഷനുകൾ നാളെ തുടങ്ങും പ്രചാരണ രംഗത്ത് ആദ്യഘട്ടത്തിൽ ലഭിച്ച മുൻതൂക്കം നിലനിർത്താ നാണ് എൽ ഡി എഫിന്റെ ശ്രമം ഇന്നലത്തെ കോൺഗ്രസ്സുകാരാണ് ഇന്നത്തെ ബി

പിയെന്ന് ടോം വടക്കൻ കോൺഗ്രസ് വിട്ടതോടെ തെളി ഞ്ഞതായി സി

എം സംസ്ഥാന സെക്രട്ടറി കോടി യേരി ബാലകൃഷ്ണൻ പറഞ്ഞു കോൺഗ്രസ്സിനുവേണ്ടി ഏറെക്കാലം ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തയാളാണ് ടോം വടക്കനെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ അഞ്ചുവർഷ ത്തിനിടെ ഇരുനൂറോളം കോൺഗ്രസ് എം എൽ എമാർ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ജെ പിക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസ്സിനെ വിശ്വ സിക്കാനാവില്ലെന്ന് ഈ സംഭവങ്ങൾ വൃക്തമാക്കുന്നതായി കോടിയേരി പൊന്നാനിയിൽ അറിയിച്ചു

ഡി എഫ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കോടിയേരി പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും തെറ്റുകൾ സംഭ വിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യ തെരഞ്ഞെ ടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ കേന്ദ്ര തെരഞ്ഞെടുപ്പ് നിരീ ക്ഷകരോട് ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പുകളിൽ പണത്തിന്റെ സ്വാധീനവും സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലും പുതിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ന്യൂഡൽഹിയിൽ കമ്മീഷൻ വിളിച്ചു ചേർത്ത കേന്ദ്ര നിരീക്ഷകരുടെ ആദ്യയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു കമ്മീഷൻ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു

വി പാറ്റ് വോട്ടുകളും എണ്ണമെന്ന് സി

ഐ ജനറൽ സെക്ര ട്ടറി എസ് സുധാകർ റെഡ്സി ഹൈദരബാദിൽ ആവശ്യപ്പെട്ടു

ബാക്കി സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപി ക്കുമെന്നും സുധാകർ റെഡ്ഡി പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിംലീഗിന് ഒന്നും ചെയ്യാനി ല്ലെന്ന് അവർ തെളിയിച്ച് കഴിഞ്ഞതായി മന്ത്രി ഡോ

പി നേതാവ് എം വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതിയായി മത്സരിച്ചപ്പോൾ എതിർത്ത് വോട്ട് ചെയ്യാൻപോലും ലീഗ് എം പിമാർ സഭയിൽ എത്തി യില്ലെന്ന് മന്ത്രി പൊന്നാനിയിൽ പറഞ്ഞു

ഡി എഫ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കുക യായിരുന്നു ഡോ

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്ലാസ്റ്റിക് ഉപേക്ഷിച്ച് ഹരി തചട്ടം പാലിക്കണമെന്ന സന്ദേശത്തോടെ കൊല്ലത്ത് വാക്ക ത്തോൺ സംഘടിപ്പിച്ചു പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത സ്റ്റീൽ കളിമണ്ണ് എന്നിവ പ്രചാരണത്തിന് ഉപയോഗിക്കണ മെന്ന് ആഹാനം ചെയ്തായിരുന്നു പരിപാടി

അഭിഭാഷകനായ അശ്വിനികുമാർ ഉപാദ്ധ്യാ യയാണ് ഹർജി നൽകിയത് തെക്കൻ മുംബൈയിൽ ഛത്രപതി റെയിൽവേ സ്റ്റേഷന് സമീപം നടപ്പാലം തകർന്നുവീണ് ആറുപേർ മരിച്ചു

ഇന്നലെ വൈകിട്ട് തിരക്കേറിയ സമയത്തായിരുന്നു കസബ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന കാൽനട മേൽപ്പാലത്തിന്റെ തകർച്ച റെയിൽവേ പ്താറ്റ്ഫോ മിനും ടൈംസ് ഓഫ് ഇന്ത്യ കെട്ടിടത്തിനും ഇടയിലെ നട പ്പാലമാണ് തകർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ ദുഃഖം രേഖ പ്പെടുത്തി മരണമടഞ്ഞവരുടെ കുടുംബങ്ങളെ സമാശ്വസി പ്പിച്ച പ്രധാനമന്ത്രി പരിക്കേറ്റവർക്ക് എത്രയും വേഗം ആശ്വാസം ലഭിക്കട്ടെയെന്നും ടിറ്ററിൽ കുറിച്ചു

ദോഹ യിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് യോഗ്യതാ നിർണയ മീറ്റ് കൂടിയാണ് സീനിയർ അത്ലറ്റിക്സ് മലയാളി താരങ്ങളായ വി

വിസ്മയ ജിസ്ന മാത്യു പി യു ചിത്ര ജിൻസൺ ജോൺസൺ വൈ

ഇവരെ കൂടാതെ ജംപ് ഇനങ്ങ ളിൽ നീനാ പിന്റോയും നയന ജെയിംസും കേരളത്തിനായി മത്സരിക്കും ഭുവനേശ്വറിൽ സൂപ്പർ കപ്പ് ഫുട്ബോളിലെ ആദ്യ മത്സ രത്തിൽ രാത്രി എട്ടരയ്ക്ക് കേരളാ ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ ആരോസിനെ നേരിടും

എസ്

സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരംമൂലം സാധാര ണക്കാർക്ക് സത്യവും അസത്യവും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ഇക്കണോമിക് ആന്റ് പൊളിറ്റിക്കൽ വീക്ക്ലി മുൻ പത്രാധിപരും സ്വതന്ത്ര മാധ്യമ പ്രവർത്ത കനുമായ പരൺജോയ് ഗുഹാതാക്കൂർ അഭിപ്രായപ്പെട്ടു കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾക്കെതിരെ കരുതൽ വേണമെന്ന് ഗുഹാതാക്കൂർ കാലിക്കറ്റ് സർവ്വകലാശാല മാധ്യമ പഠന വിഭാഗത്തിന്റെ ദേശീയ സമ്മേളനത്തിൽ പറഞ്ഞു

തിരുവനന്തപുരം ശ്രീവരാഹം കുളത്തിൻ കരയിൽ മയ ക്കുമരുന്ന് സംഘത്തിന്റെ കുത്തേറ്റ് യുവാവ് മരിച്ചു

ഇന്നലെ രാത്രിയായിരുന്നു സംഭവം രണ്ടുപേർക്ക് പരിക്കേ റ്റു മയക്കുമരുന്ന് സംഘങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ പിടിച്ചു മാറ്റാൻ എത്തിയതായിരുന്നു ശൃാം എന്ന് പൊലീസ് പറ ഞ്ഞു നാളെ ആരംഭിക്കുന്ന കാഞ്ഞങ്ങാട് കാവ്യോത്സവ ത്തിന്റെ കൊടിയേറ്റത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഒപ്പു മരം സാമൂഹൃപ്രവർത്തക ദയാഭായ് ഉദ്ഘാടനം ചെയ്തു എൻഡോസൾഫാൻ ദുരന്തം നേരിടുന്നവർക്കായാണ് തന്റെ പ്രവർത്തനമെന്നും ഈ വിഷയം പൂഴ്ത്തിവെക്കാൻ ശ്രമി ക്കുന്ന അധികാരികൾക്കെതിരെ പോരാട്ടം തുടരുമെന്നും അവർ പറഞ്ഞു മലപ്പുറം പുറത്തൂർ പഞ്ചായത്തിൽ ഒരു സൌകര്യവുമി ല്ലാതെ അലൂമിനിയം ഷീറ്റുകൊണ്ട് മറച്ചയിടത്ത് പ്രവർത്തി ക്കുന്ന അംഗൻവാടിക്കെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു

രണ്ടുകോടി രൂപ ചെല വഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് മദ്ധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തമായ കാർഷിക മേള ഓമല്ലൂർ വയൽ വാണിഭത്തിന് പത്തനംതിട്ടയിൽ തുടക്ക മായി ഒരുമാസത്തെ വയൽ വാണിഭത്തിൽ കാർഷിക വിഭ വങ്ങൾ വളർത്തുമൃഗങ്ങൾ ഗൃഹോപകരണങ്ങൾ അലങ്കാ രച്ചെടികൾ എന്നിവയുടെ ക്രയ വിക്രയമാണ് നടക്കുന്നത്